സ്വാശ്രയ ഇന്ത്യയ്ക്കായി വൃവസായ വാണിജ്യ സംരംഭങ്ങൾ വരും വർഷങ്ങളിൽ പരമാവധി ശേഷിയും ഉപയോഗിക്കണമെന്ന് പ്രധാനന്ത്രി നരേന്ദ്രമോദി

പ്രതിപക്ഷത്തിന്റെ തെറ്റായ പ്രച്ചാർണങ്ങൾക്കെതിരെ രാജ്യത്തെ കർഷകർക്ക് പ്രഗ്നാ്ന്മന്ത്രിയുടെ ജാഗ്രതാ നിർദ്ദേശം

തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേർപ്പെട്ടവർ ഒരാഴ്ച ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി

ഇന്ത്യൻ വൃവസായങ്ങളുടെ കാര്യപ്രാപ്തിയും പ്രതിബദ്ധതയും ധീരതയും ലോകത്തിന് മുൻപിൽ പ്രകടിപ്പിക്കാനുള്ള സമയമാണ് ഇതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

മുൻ സർക്കാരുകൾ തങ്ങളുടെ പ്രകടന പത്രികയിൽ ഇത് നടപ്പാക്കുമെന്നു വാഗ്ദാനം ചെയ്യുകയും എന്നാൽ നടപ്പാക്കാതിരിക്കുകയുമാണ് ചെയ്തത്

ഹൈദരാബാദിൽ ദുണ്ഡിഗലിലെ വ്യോമസേനാ അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള പതക്കം നൽകുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുദ്ധക്രമങ്ങളും തന്ത്രങ്ങളും മാറിവരുകയാണ് സൈബറിടങ്ങളിലെ യുദ്ധം ഉൾപ്പടെയുള്ള പുതിയ വെല്ലുവിളികൾ നേരിടാൻ പൂർണ്ണ സജ്ജരായിരിക്കണമെന്നും സേനയിലെ പുതിയ അംഗങ്ങൾക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി

നിലവിൽ മൂന്നു ലക്ഷത്തി എണ്ണായിരത്തോളം പേരാണ് രാജ്യത്ത് ചികിത്സയിൽ കഴിയുന്നത് കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജ്യ

വ്യാപകമായ കോവിഡ് പരിശോധന മുൻകരുതൽ നല്ല പരിചരണം എന്നിവയിലൂടെയാണ് ഇതു സാധ്യമായത് എന്ന് മന്ത്രാലയം അറിയിച്ചു

ശൈലജ നിർദ്ദേശിച്ചു

മറ്റു രാജ്യങ്ങളിൽ വികസിപ്പിച്ചെടുത്ത വാക്സിനുകൾക്ക് സമാനമായി ഇന്ത്യയിലെ വാക്സിനുകളും ഫലപ്രദമാകും എന്ന് മന്ത്രാലയം അറിയിച്ചു വാക്സിൻ പരീക്ഷണങ്ങൾ അന്തിമ ഘട്ടത്തിലാണെന്നും വിതരണം ഉടൻ ആരംഭിക്കുമെന്നും സർക്കാർ അറിയിച്ചു

പനാജിയിലെ ആസാദ് മൈതാനിയിലെ രക്തസാക്ഷിമണ്ഡപത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പുഷ്പചക്രം സമർപ്പിക്കും ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി കേന്ദ്രമന്ത്രി ശ്രീപത് നായിക് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും കൂട്ടായ പരിശ്രമത്തിലൂടെ സ്വയംപര്യാപ്തമായ ഗോവ കെട്ടിപ്പടുക്കണമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഗോവൻ ജനതയോട് അഭ്യർത്ഥിച്ചു

ഗോവയുടെ വിമോചനത്തിനായി അക്ഷീണം പ്രയത്നിച്ച എല്ലാവരുടെയും ധീരതയിൽ അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

കുറഞ്ഞ താങ്ങുവിലയിൽ വിളകൾ സംഭരിക്കുന്നത് സർക്കാർ ഇപ്പോഴും തുടരുകയാണ് പഞ്ചാബ്ട് ഹരിയാന ഉത്തർപ്രദേശ് തെലുങ്കാന ഉത്തരാഖണ്ഡ് തമിഴ്നാട് ചണ്ഡീഗഡ് ജമ്മു കാശ്മീർ കേരള ഗുജറാത്ത് ആന്ധ്രപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ബിഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ നെല്ലുസംഭരണം തുടരുകയാണ്

ലീഗിൽ ഇന്നലെ നടന്ന മാത്സരത്തിൽ ജംഷഡ്പൂർ നോർത്ത് ഈസ്റ് യുണൈറ്റഡിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു

അലിഗർഹിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പെൺകുട്ടിയെ പിന്നീട് സ്ട്രൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരൂന്നു

വയറിളക്കവും മറ്റുരോഗ ലക്ഷണവുമുള്ളവർ ഉടൻ ചികിത്സതേടണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു